ദുരന്ത സാഹചര്യത്തിനിടയിൽ തെറ്റായി സുന്ദേശങ്ങൾ പ്രച രിപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ കാലവർഷക്കെടുതികൾ തുടരുന്നു കോഴി ക്കോട്ടും കണ്ണൂരും ഇന്ന് ഓരോരുത്തർ മരിച്ചു ബാണാസുര സാഗർ അണക്കെട്ട് ഉച്ചകഴിഞ്ഞ് മൂന്നിന് തുറ ക്കും

രാഹുൽഗാ്സി നാളെ കോഴിക്കോട്ടെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും അറിയിച്ചു സംസ്ഥാനത്തെ പ്രളയസാഹചര്യം നേരിടാൻ വിവിധ ഗവൺമെന്റ് ഏജൻസികളും കേന്ദ്ര സേനയും പൊലീസും ഫയർഫോഴ്സും ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനം തുടരുകയാ ണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വസ്തുവകക ളുടെ നഷ്ടങ്ങൾ പരിഹരിക്കാനാവുമെന്നും എന്നാൽ മനുഷ്യജീ വൻ അപകടത്തിൽ പെടാതിരിക്കാനാണ് ഏറ്റവും ശ്രദ്ധപുലർത്തേ ണ്ടതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലെ മുന്നറിയിപ്പുകൾ അവ ഗണിക്കരുതെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു

ഇവർക്ക് ഹെലി കോപ്ടറിൽ സഹായം എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതി കൂല കാലാവസ്ഥ മൂലം മറ്റ് രീതികളിൽ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല ദുരന്ത സാഹചര്യത്തിനിടയിൽ തെറ്റായ സ്ന്ദേശങ്ങൾ പ്രചരി പ്പിക്കുന്നതായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞു ഭീതി പരത്തുന്ന ഇത്തരം സന്ദേശങ്ങൾ ആരുടെയും ഭാഗ ത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലെന്നും അദ്ദേഹം നിർദേശിച്ചു

ഇന്ന് ഉച്ചക്ക് ശേഷവും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ദുർന്തമേഖലകളിലേക്ക് സന്ദർശനം ഒഴി വാക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു

നിലമ്പൂർ കവളപ്പാറയിലെയും വയനാട് പുത്തുമലയിലെയും മണ്ണിടിച്ചിലിൽ കാണാതായവരുടെ എണ്ണം കൂടി പരിഗണിക്കു മ്പോൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും

ഇന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു

എന്നാൽ ജെസിബി അടക്കം സംവിധാനങ്ങളില്ലാതെ രക്ഷാപ്രവർത്ത നങ്ങൾ കാര്യക്ഷമമായി തുടരാൻ കഴിയില്ലെന്നാണ് പ്പിലയിരുത്തൽ

അപകടമേഖലയിൽ ഒറ്റപ്പെ ട്ടവരെ സഹായിക്കാൻ നാവികസേന് ്ഹെലികോപ്ടർ ഉച്ചയോടെ എത്തുമെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്ട്

കാസർകോഡ് ജില്ലയിൽ തേജ്യസ്ഥിനി പുഴ കവിഞ്ഞ് ഇരുകരക ളിലേയും വീടുകളും സ്ഥലങ്ങളും വെളളത്തിനടിയിലായി നീലേ ശ്വരവും കയ്യൂർ മേഖലകളിലാണ് വെള്ളം കയറിയത് മാഹിപ്പുഴയും കരകവിഞ്ഞ് ഒഴുകുകയാണ്

കളക്ട്രേറ്റ് പ്ലാനിംഗ് ഹാളിൽ ഇവർക്കാവശ്യമായ സാധനങ്ങൾ ശേഖരിക്കാൻ കളക്ഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങി പ്രകൃതിദുരന്തവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗം ഉച്ചയോടെ കലക്ട്രേറ്റിൽ ആരംഭിച്ചു കോഴിക്കോട് പൂനൂർ പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതിനാൽ കക്കോടി ബണ്ടിന് സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രതപുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിലും ഒരാൾ കൂടി മരി ച്ചു പയ്യന്നൂർ മുത്തതിയിലെ കൃഷ്ണനാണ് വെളളക്കെട്ടിൽ വീണ് മരിച്ചത് ഇതോടെ ജില്ലയിൽ മൂന്നുദിവസത്തിനിടെ മരിച്ച വരുടെ എണ്ണം മൂന്നായി

വയനാട് ബാണാസുര അണക്കെട്ട് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി യോടെ തുറക്കും രാവിലെ എട്ടു മുതൽ മേഖലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഡാമിന്റെ ഷട്ടർ മൂന്ന് ഘട്ടങ്ങളിലായാണ് തുറക്കുക അപകടസാധൃതാ മേഖലക്ളിൽ താമസിക്കാൻ ആരെയും അനുവദിക്കരുതെന്ന് വില്ലേജ് ഓഫീസർമാർക്ക് നിർദേശം നൽകി

പുഴ കരകവിഞ്ഞാഴുകി വെള ള ക്കെ ട്ടുണ്ട് ാകുന്ന പല സ്ഥലങ്ങളിലും കേന്ദ്ര സേ നയും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം തുടരുന്നു കൊയിലാണ്ടിയിൽ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സും വടകരയിൽ ബിഎസ്എഫും ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു

കഴിഞ്ഞ ദിവസം മലയിടിച്ചിലുണ്ടായ നിലമ്പൂർ കവളപ്പാറയിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് സൈന്യം സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രതികൂല കാലാ വസ്ഥ മൂലം അപകടസ്ഥലത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല മലപ്പുറം കവളപ്പാറയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഇന്ന് വീണ്ടും ഉരുൾപൊട്ടി

മലയിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ സൈന്യം എത്തിച്ചേർന്നെങ്കിലും ശക്തമായ മൃദ്യികാരണം രക്ഷാ പ്രവർത്തനങ്ങൾ വൈകുന്നു ഉത്തരകേരളം കടുത്ത ഗതാഗത പ്രതിസന്ധി നേരിടുകയാ ണ് ഷൊർണൂർ വരെയാണ് ഇപ്പോൾ ട്രെയിൻ സർവീസുകൾ ഷൊർണൂർ കണ്ണൂർ റൂട്ടിൽ ഇന്നലെ മുതൽ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് കോഴിക്കോട്ട് നിന്ന് കണ്ണൂർ വയ നാട് പാലക്കാട് ഭാഗത്തേക്ക് കെഎസ്ആർടിസി ബസുകളും സർവീസ് നടത്തുന്നില്ല് അന്തർ സംസ്ഥാന സർവീസുകളും നിർത്തിവെച്ചു കണ്ണൂരിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് ട്രെയിൻ സർവീസുകൾ നിർത്തി

ഇന്നത്തെയും നാളത്തെയും തിരുവനന്തപുരം ചെന്നൈ എറ ണാകുളം ചെന്നൈ ട്രെയിനുകൾ റദ്ദാക്കി കേരള എക്സ്പ്രസ് നാഗർകോവിൽ വഴി ഡൽഹിയിലേക്ക് വഴിതിരിച്ചു വിടും ഹിസാർ കോയമ്പത്തൂർ ദാദർ തിരുനൽവേലി വെരാവൽ തി രുവനന്തപുരം ട്രെയിനുകൾ കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കും നാളത്തെ തിരുവനന്തപുരം ഖോരക്പൂർ എക്സ്പ്രസ് ഈറോ ഡിൽ സർവീസ് അവസാനിപ്പിക്കും പാലക്കാട് ജില്ലയിൽ മഴ വീണ്ടും ശക്തിപ്രാപിച്ചു അട്ടപ്പാടി മേഖലയിലാണ് കൂടുതൽ മഴ പെയ്യുന്നത്

നെല്ലിയാമ്പതി ചുരം റോഡിൽ അഞ്ചിടങ്ങളിൽ മണ്ണിടിഞ്ഞു

തുരുത്തിൽ കുടുങ്ങിയ ഗർഭിണിയും പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ആളുകളെയും അഗ്നിശമനസേന രക്ഷിച്ചു

തൃശൂർ പത്ത നംതിട്ട എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയാണ് അച്ചൻകോവിലാറിലും പമ്പയിലും ജലനിരപ്പ് ഉയർന്നു അതേസ മയം ചാലക്കുടിപുഴയിലെ ജലനിരപ്പ് കുറയുന്നതിയി സൂചനയു ണ്ട് നെടുമ്പാശേരി വിമാനത്താവളത്തിലേയും ്രിനില്യിൽ പുരോഗ തി റിപ്പോർട്ടു ചെയ്യുന്നു

ഇടയ്ക്ക് മഴ കുറഞ്ഞെങ്കിലും ഉച്ചയോടെ വീണ്ടും ശക്തമാവുകയായിരുന്നു

ഭൂതത്താൻകെട്ട് മലങ്കര അണക്കെട്ടു കളിൽ ജലനിരപ്പ് ഉയരുന്നതിൽ ശുമനമുണ്ട് പെരിയാറിലും ജലനി രപ്പ് ഉയരുന്നില്ല

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് ദ്വീപ് ദുരന്തനിവാരണ അതോറിറ്റി അറിയി ച്ചും കൊച്ചിയിലേയും കോഴിക്കോട്ടെയും ലക്ഷദ്വീപ് ഗസ്റ്റ്ഹൌസു കൾ വിദ്യാർത്ഥികൾക്കാടി തുറന്നുകൊടുത്തിട്ടുണ്ട് രാഹുൽഗാന്ധി നാളെ കോഴിക്കോട്ടെത്തുമെന്ന് പ്രതിപക്ഷനേ താവ് രമേശ് ചെന്നിത്തലയും കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും കോഴിക്കോട് അറിയിച്ചു വയനാട് മലപ്പുറം കലക്ട്രേ റ്റുകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രളയ രക്ഷാപ്രവർത്തനങ്ങൾ വില യിരുത്തും കേരളത്തിലെ പ്രളയകാരണം അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു

ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മുതിർന്ന ബി

പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലിയെ ന്യൂഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹത്തിന്റെ ആരോ ഗൃനില ഗുരുതരമായി തുടരുകയാണെന്നാണ് റിപ്പോർട്ട് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു രാവിലെ ആശുപത്രിയി ലെത്തി ജെയ്റ്റ്ലിയെ സന്ദർശിച്ചു അദ്ദേഹം മരുന്നുകളോട് നന്നായി പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി ഉപരാഷ്ട്ര പതി പറഞ്ഞു

ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദ്വി എടുത്തുകളഞ്ഞ തീരുമാനത്തോട് ബന്ധപ്പെട്ടാണ് സ്ംസ്ഫാ്ന വ്യാപകമായി നിയന്ത്ര ണങ്ങൾ ഏർപ്പെടുത്തിയത്

രാഹുൽഗാന്ധി രാജിവെച്ച ഒഴിവിൽ പുതിയ അധ്യ ക്ഷനെ നിശ്ചയിക്കാനാണ് ഇന്നത്തെ യോഗം മുതിർന്ന് നേതാക്കൾക്കൊപ്പം രാഹുൽഗാന്ധിയും യോഗത്തിൽ പങ്കെടുത്തേക്കും